പാർലമെന്റിൽ മഹാരാഷ്ട്ര വിഷ്യത്തിൽ പ്രതിഷേധം ടി

പ്രതാപനും ഹൈബി ഇയ്യ്നും സസ്പെൻഷൻ

ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു

വായു ജല ഗുണനിലവാരം സംബന്ധിച്ച് സംസ്ഥാനങ്ങളോട് സൂപ്രീം കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു

ശിവസേനയും എൻ സി പിയും കോൺഗ്രസും സംയുക്തമായി സമർപ്പിച്ച ഹർജി പരിഗണിച്ചു ശേഷമാണ് പരമോന്നത കോടതിട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ച ഗവർണറുടെ തീരുമാനത്തിനെതിരായ ഹർജിയിൽ ഇന്ന് സുപ്രീം കോടതി വാദം കേട്ടു ജസ്റ്റിസ് എൻ വി രമണ അശോക് ഭൂഷൺ സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽട് തുഷാർ മേത്ത മഹാരാഷ്ട്ര ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും കത്തുകൾ കോടതിയിൽ സമർപ്പിച്ചു മുഖ്യമന്ത്രി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു വോയ്സ് ഇന്ന് രണ്ട് തവണ നിർത്തിവച്ചു ലോക്സഭ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീണ്ടും സമ്മേളിച്ചെങ്കിലും കോൺഗ്രസ് ഇടത് എം

ഇതിനിടെ നാല് ബില്ലുകൾ അവതരിപ്പിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു രാവിലെ ലോക്സഭ സമ്മേളനം ആരംഭിച്ചതു മുതൽ മഹാരാഷ്ട്ര ഗവർണറുടെ ഇടപെടലുകൾ മുൻനിർത്തി എൻ

എ

സ്പീക്കറുടെ താക്കീത് അവഗണിച്ച് ബാനറുയർത്തിയ കോൺഗ്രസ് അംഗങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കാൻ സ്പീക്കർ മാർഷൽമാരുടെ സഹായം തേടി മഹാരാഷ്ട്രയിൽ ജനാധിപത്യം അടിച്ചമർത്തപ്പെട്ടതായി രാഹുൽ ഗാന്ധി എം

മഹാരാഷ്ട്ര വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് രാജ്യസഭ ചെയർമാൻ അനുമതി നിഷേധിച്ചു കോടതി പരിഗണിക്കുന്ന വിഷയം ചർച്ച ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് ശ്രീ

തുടർന്ന് രണ്ട് മണിവരെ നിർത്തി വച്ച സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നതിനാൽ നാളെ രണ്ട് മണിവരെ പിരിയുകയായിരുന്നു

സംവാദങ്ങൾക്കും ചർച്ചകൾക്കുമുള്ള സ്ഥലമാണ് പാർലമെന്റെന്നും പാർലമെന്റില്പെ ക്കോൺഗ്രസ് അംഗങ്ങളുടെ പെരുമാറ്റം ് സഭയുടെ അന്തസ്സിന്റ് യോജിച്ചതല്ലെന്നും കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ബി ജെ പി സംഭവത്തെ അപലപിച്ചു അത്സമയ്ം കോൺഗ്രസിന്റെ രണ്ട് വനിതാ എം പിമാർ ഉൾപ്പെടെയുള്ള അംഗ്രിങ്ങൾക്ക് നേരെ മാർഷൽമാർ കയ്യേറ്റം നടത്തിയെന്ന് പാർട്ടി ആരോപിച്ചു വനിതാ എം പി മാർ സ്പീക്കർക്ക് പരാതി നൽകിയതായി ്ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ പറഞ്ഞു

സംവിധാൻ ദിനമായി ഇത് ആചരിക്കും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്യും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടക്കുന്ന ഡിജിറ്റൽ പ്രദർശനം രാഷ്ട്രപതി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും

ഇതിലൂടെ പ്രധാനമന്ത്രിക്കും അടുത്തു കുടുംബാംഗങ്ങൾക്കുമായിട് എസ് പി ജി സംരക്ഷണം ചുരുക്കിയിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രിമാർക്കും കുടുംബാംഗങ്ങൾക്കും അവർക്കെതിരെയുളള സുരക്ഷാ ഭീഷണിയുടെ തോത് അനുസരിച്ച് എസ് പി ജി സംരക്ഷണം ലഭിക്കും

അധ്യാപകരുടെ നിയമനത്തിനായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിഷൻ മാർഗ്ഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു എത്രയും വേഗ്ം ഒഴിവുകൾ നികത്താൻ നടപടികൾ സ്വീകരിക്കാൻ സർവകലാശാലകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

ചീഫ് സെക്രട്ടറിയുമായും ഫിനാൻസ് സെക്രട്ടറിയുമായും ഇരുവരും കൂടിക്കാഴ്ച നടത്തി കാലം തെറ്റിയുള്ള മഴ മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്കുള്ള അധിക സഹായം സംബന്ധിച്ച ചർച്ചകൾ നടന്നതായി ശ്രീ

അതേസമയം ശിവസേന എൻ സി

കോൺഗ്രസ് നേതാക്കൾ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള അവകാശം ഉന്നയിച്ചു കൊണ്ടുള്ള കത്ത് സമ്മർപ്പിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു വോയിസ് ഡൽഹി ദേശീയ തലസ്ഥാന നഗര മേഖലയിൽ മലിനീകരണം ചെറുക്കുന്നതിനായി സ്മോഗ് ടവറുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ പത്ത് ദിവസത്തിനകം തീരുമാനം എടുക്കാൻ സുപ്രീം കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു മലിനീകരണം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പഞ്ചാബ് ഹരിയാന ് ഉത്തർപ്രദേശ് ഡൽഹി സംസ്ഥാനങ്ങളുടെ പ്രകടനത്തിൽ കോടതി അസന്തുഷ്ടി രേഖപ്പെടുത്തി മോശമായ വായുഗുണനിലവാരം ദോഷകരമായി ബാധിച്ച ജനങ്ങൾക്ക് സംസ്ഥാനങ്ങൾ നഷ്ടപരിഹാരം നൽകാതിരിക്കാൻ കാരണങ്ങളുണ്ടോ എന്നും കോടതി ആരാഞ്ഞു കാർഷിക അവശിഷ്ടം കത്തിക്കുന്ന അവസ്ഥ ഭീതിയുളവാക്കുന്നതാണെന്ന് ജസ്റ്റീസുമാരായ അരുൺ മിശ്രയും ദീപക് ഗുപ്തയും അടങ്ങുന്ന ബെഞ്ച് നിരീക്ഷിച്ചു സംസ്ഥാന ഭരണകൂടം മാത്രമല്ല കർഷകരും ഇതിന് ഉത്തരവാദികളാണെന്ന് ബെഞ്ച് പറഞ്ഞു ഗംഗ യമുനയുൾപ്പെടെയുള്ള നദികളിൽ മലിനീകരണം തടയാൻ സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ട് ചെയ്യാൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളോടും ബെഞ്ച് ആവശ്യപ്പെട്ടു

നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്

സി

സമാനമായ രീതിയിൽ ഡൽഹിയിലും ആക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നതായി പൊലീസ് പറഞ്ഞു

ന്യൂഡൽഹിയിൽ വ്യോമസേന കമാൻഡർമാരുടെ ദൈവാഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാളെയും തുടരുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ സംയുക്ത സൈനിക നടപടികൾ ഡ്രോൺ പ്രതിരോധ നടപടികൾ തുടങ്ങിയവ ചർച്ചയായി

വായ്പാബന്ധിത സബ്സിഡി സേവനങ്ങൾ സുതാര്യവും വെബ് മുഖേനയും ഉറപ്പാക്കുന്ന സംവിധാനമാണ് ഇത് ഗുണഭോക്താവിന് തന്റെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പോർട്ടലിലൂടെ അറിയാനാകും ഗുണഭോക്താക്കളുടെ ആവലാതികൾക്ക് പൂർണമായ പരിഹാരം നൽകാൻ പോർട്ടലിനാകുമെന്ന് മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു

കിമ്മിന്റെം നേതൃത്വത്തിൽ പടിഞ്ഞാറൻ തീരമേഖലയിലെ സൈനിക ക്ട്രേന്ദ്രത്തിൽ പരിശോധന നടക്കുമ്പോഴാണ് വെടിവയ്പ്പ് ഉണ്ടായതെന്ന് പ്രിടക്കൻ കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കുഴിഞ്ഞ വർഷം അമേരിക്കയുമായി ആണവ ചർച്ചകൾ ആരംഭിച്ച ശേഷം ഇതാദ്യമായാണ് കിം ജോങ് ഉൻ ഒരു മുൻനിര സൈനിക യൂണിറ്റ് സന്ദർശിച്ചത്

പി പാർലമെന്റിലും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രതിപക്ഷ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

നിയമനിർമാണ സഭകളിൽ ഗവൺമെന്റുകളുടെ തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനുമുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശ ലംഘനമാണിത്

പ്രതാപനെയും വനിതാ അംഗങ്ങളായ രമ്യാ ഹരിദാസും ജ്യോതിമണിയും പുരുഷ മാർഷലുമാരുടെ കയ്യേറ്റത്തിനിരയായി എന്നത് ഞെട്ടിക്കുന്നതാണെന്നും ശ്രീ ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു

ജപ്പാനിലെ ഒസാകയിൽ മലയാളി സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതിക്ഷോഭങ്ങളെ നേരിടുന്നതിൽ ജപ്പാന്റെ ശ്രമങ്ങൾ വിജയകരമാണെന്നും കേരളത്തിന് ജപ്പാനിൽ നിന്നും വളരെയധികം പഠിക്കാനുണ്ടെന്നും തന്റെ സന്ദർശന ഉദ്ദേശ്യങ്ങളിലൊന്ന് ഇതാണെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി